ഡൽഹിയിലെ പ്രചാരണ പരിപാടിയിൽ പാർട്ടി അധ്യ ക്ഷനും കേന്ദ്ര മന്ത്രി യു മായ അമിത് ഷാ പങ്കെടുക്കും ഗാസിയാബാദിൽ ബി ജെ പി വർക്കിംഗ് പ്രസിഡണ്ട് ജെ പി നദ്ദ ജനസമ്പർക്കത്തിന് തുടക്കമി ടും കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ്സിംഗും നിതിൻഗഡ്ക രിയും പാർട്ടി നേതാക്കളും വിവിധ സ്ഥലങ്ങളിൽ വീടു കൾ കയറി നടത്തുന്ന പ്രചാരണ പരിപാടിയിൽ പങ്കെ ടുക്കും മൂന്ന് കോടി കുടുംബങ്ങളെ നേരിൽ കണ്ട്പൌരത്വ നിയമ ഭേദഗതിയ്ക്ക് പിന്തുണ തേടാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് ടോൾഫ്രീ നമ്പറിൽ മിസ്ഡ് കോളിലൂടെ നിയമത്തെ പിന്തുണയ്ക്കാനും അവസരമൊരുക്കിയിട്ടുണ്ട് ശ്രദ്ധമങ്ങളെ ശ്രദ്ധ സ്ത്രീസുരക്ഷ ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊലീസ് മുന്തിയ പരിഗണന നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു

ഇക്കാര്യ ത്തിൽ പ്രധാന ചുമതല പൊലീസിനാണെങ്കിലും പൊതുസമൂഹവും ഇതിന് പിന്തുണ നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു

ജനങ്ങൾ നേരിട്ട് നിയമം കയ്യിലെടുക്കുന്ന സാഹ ചര്യം ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു

സ്ത്രീസുരക്ഷ ഉറപ്പാക്കുന്നതിന് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സധൈര്യം മുന്നോട്ട് പരിപാടിയ്ക്ക് നല്ല പിന്തുണയാണ് ലഭിക്കുന്ന തെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു നഗരങ്ങളിൽ ഷാഡോ പൊലീസ് സംവിധാനം ശക്തിപ്പെടുത്തുമെന്നും പിണ റായി വിജയൻ പറഞ്ഞു ദ അക്ഷങ്ങളെ അങ കേരള പൊലീസിന്റെ സൈബർ സുരക്ഷാവിഭാഗം സൈബർഡോം കോഴിക്കോട്ട് പ്രവർത്തനമാരംഭിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ സൈബർപാർക്കിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഡോം ഉദ്ഘാടനം ചെയ്തു വടക്കൻ കേരളം കേന്ദ്രീകരിച്ച് ആദ്യത്തേതും സംസ്ഥാനത്ത് മൂന്നാമത്തെതുമാണ് കോഴിക്കോട്ടെ സൈബർഡോം

യാഥാസ്ഥിതിക കാർഷിക രീതിക ളിൽ നിന്ന് മാറിയാലേ നഷ്ടത്തിന്റെ കണക്കിൽ നിന്ന് കാർഷിക മേഖലയെ രക്ഷിക്കാനാകൂ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ കൃഷിവകുപ്പിന്റെ നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം ജീവനി പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു മുഖ്യമന്ത്രി ശേക്ഷക്കങ്ങ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കു സമീപം ലഹരി വിറ്റതിന് പിടിക്കപ്പെടുന്ന കടകൾ വീണ്ടും തുറക്കാൻ അനു വദിക്കില്ലെന്ന് മുന്തി ടി

ഇക്കാര്യ ത്തിൽ എക്സൈസ് തദ്ദേശ വകുപ്പുകൾ കർശന നടപടിയെടുക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വിമുക്തി ഭരണസമിതി യോഗത്തിൽ പറഞ്ഞു

അക്ഷമങ്ങളെ അങ്ങ കൊച്ചി മരടിൽ തീരപരിപാലന നിയമം ലംഘിച്ച് നിർമ്മിച്ച ഫ്ളാറ്റുകൾ പൊളിക്കുന്ന നടപടികൾക്ക് അന്തിമരൂപമായി സമയക്രമത്തിൽ മാറ്റം വരുത്തേണ്ട തില്ലെന്ന് ഇന്നലെ ജില്ലാകലക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു

ആദ്യം പൊളിക്കുന്ന മൂറ ഫ്ളാറ്റിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്ന ജോലി ഇന്നലെ രാവിലെ ആരംഭിച്ചു

ദേശീയപാതയിലും മറ്റ് റോഡു കളിലും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തും സ്ഫോടനത്തിന്റെ പ്രകമ്പനം പരിശോധിക്കാൻ ഐ ഐ ടി വിദഗ്ധ സംഘവും മരടിൽ എത്തിയിട്ടുണ്ട് കേരളഫീഡ് സിന്റെ ഇടുക്കി അരിക്കു ഴ യിലെ ഹൈടെക് കാലിത്തീറ്റ ഫാക്ടറി വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മന്ത്രി എം എം മണി ഡയറി റിച്ച് കാലിത്തീറ്റയുടെയും മന്ത്രി കെ രാജു കോഴിത്തീറ്റയുടെയും വിപണനം ഉദ്ഘാടനം ചെയ്യും ശേക്ഷക്കങ്ങ തൊടുപുഴയിൽ ഗാന്ധിജി സ്റ്റഡിസെന്റർ കാർഷിക മേള ഇന്ന് സമാപിക്കും രാവിലെ കന്നുകാലി പ്രദർശനം ആരംഭിക്കും വൈകിട്ട് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കർഷകതി ലക് അവാർഡുകളും മറ്റ് സമ്മാനങ്ങളും വിതരണം ചെയ്യും ശേക്ഷക്കുള്ള പ ജി എസ് ടി വിഹിതം സമയത്ത് നൽകാതെ സംസ്ഥാ നങ്ങളുടെ സാമ്പത്തിക നില തകിടംമറിയ്ക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രിത നീക്കം നടത്തുകയാണെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കുറ്റപ്പെടുത്തി കൊല്ലം ചിറ്റുമലയിൽ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്ക ളുടെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

പരിക്കിനെ തുടർന്ന് മാറിനിന്ന ഫാസ്റ്റ് ബൌളർ ജസ്പ്രീത് ബുംറയും ഓപ്പ ണർ ശിഖർ ധവാനും ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്

ഐ എസ് എൽ ബ്ലാസ്റ്റേഴ്സിന് പത്ത് കളിയിൽ എട്ട് പോയിന്റും ഹൈദരാബാദിന് ഒൻപത് കളിയിൽ അഞ്ച് പോയിന്റുമുണ്ട് അക്ഷജക്ഷങ്ങൾ മംഗലാപുരം മൂഡബിദ്രിയിൽ അഖിലേന്ത്യാ അന്തർ സർവകലാശാല മീറ്റിന്റെ മൂന്നാം ദിനമായ ഇന്നലെ കേര ളത്തിന് രണ്ട് സ്വർണ്ണം ഉൾപ്പടെ എട്ട് മെഡലുകൾ ലഭി ച്ചു

ഐ ലീഗ് ഫുട്ബോളിലെ രണ്ടാമത്തെ ഹോം മത്സ രത്തിൽ ഗോകുലം കേരള എഫ് സി ഐസാൾ എഫ് സി മത്സരം സമനിലയിൽ പിരിഞ്ഞു ഇരുടീമുകളും ഓരോ ഗോളടിച്ചു ഇതോടെ ഗോകുലത്തിന് രണ്ട് ജയവും ഒരു സമനിലയുമായി ഏഴ് പോയിന്റ് ലഭിച്ചു ഗോവയിൽ മറ്റൊരു മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സ് മറുപടിയില്ലാത്ത ഒരു ഗോളിന് ഈസ്റ്റ് ബംഗാളിനെ പരാ ജയപ്പെടുത്തി ഐ ലീഗിൽ മുന്നിലെത്തി ഇംഫാലിൽ മിനർവ പഞ്ചാബ് ട്രാവ് മത്സരം ഗോൾര ഹിത സമനിലയിൽ അവസാനിച്ചു ശ്രമശക്ഷക്ഷങ്ങ ഹൈദരാബാദിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ ഹൈദരാബാദിന് ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ലഭിച്ചു

ഭുവനേശ്വറിൽ അന്തർസർവകലാശാല പുരുഷ വോളിബോൾ ചാമ്പൃൻഷിപ്പിൽ കലിക്കറ്റ് ക്വാർട്ടർ ഫൈനലിലെത്തി ലീഗ് റൌണ്ടിലെ മൂന്ന് മത്സരങ്ങളിൽ ജയിച്ച് പൂൾചാമ്പൃൻമാരായാണ് അവർ ക്വാർട്ടർ യോഗ്യത നേടിയത്

ഇന്നലെ മേളയിൽ മൂന്ന് മീറ്റ് റെക്കോർഡുകൾ പിറന്നു

സമാപന ചടങ്ങ് മന്ത്രി എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്യും ശേക്ഷക്കങ്ങ സംസ്ഥാന ഗവൺമെന്റിന്റെ പന്ത്രണ്ടിന പരിപാടി യുടെ ഭാഗമായി മുഴുവൻ ആളുകൾക്കും റേഷൻകാർഡ് വിതരണം ചെയ്യുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറ ഞ്ഞു കോഴിക്കോട് നൊച്ചാട് ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളുടെ പ്രവൃത്തി പൂർത്തീകരണ പ്രഖ്യാപനം നടത്തുകയായിരുന്നു മന്ത്രി പന്ത്രണ്ടിന പദ്ധതികളുടെ ഭാഗമായി യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കായി നഗരങ്ങളിൽ സുരക്ഷിത താമസ സൌകര്യം ഒരുക്കും

ി അവശ്യങ്ങൾ ജനികീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്ന ഉപകരണങ്ങളായല്ല ജനപക്ഷത്ത് നിന്ന് പ്രവർത്തി ക്കുന്നവരാകണം പൊലീസ് എന്ന് മന്ത്രി ജെ മേഴ്സി ക്കുട്ടിയമ്മ പറഞ്ഞു കൊല്ലം പുത്തൂർ പൊലീസ് സ്റ്റേഷൻ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

തിരു വനന്തപുരം ഞാറനീലി അംബേദ്കർ വിദ്യാനികേതനാണ് രണ്ടാം സ്ഥാനത്ത് സർഗോത്സവം രാവിലെ മന്ത്രി ടി പി രാമകൃഷ്ണൻ ഔപ ചാരികമായി ഉദ്ഘാടനം ചെയ്യും

തൃശൂരിലെ കൊരട്ടിക്കര ഗവൺമെന്റ് യു പി സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു മന്ത്രി എരു മ പെട്ടി ഹയർസെ ക്കണ്ടറി സ്കൂളിന്റെ പുതിയ കെട്ടിടവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു അക്ഷക്കുക്കുള്ള പൌരത്വ നിയമ ഭേദഗതിയ്ക്കെതിരെ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി എം കെ രാഘവൻ എം പി നയിക്കുന്ന ലോങ് മാർച്ച് നാളെ കോഴിക്കോട് കൊടുവ ള്ളിയിൽ കെ പി സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമച ന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും

ശേക്ഷക്കങ്ങ പെൻഷൻഫണ്ട് റെഗുലേറ്ററി ആന്റ് ഡെവലപ്മെന്റ് അതോറിറ്റി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കൊച്ചിയിൽ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരും പൊതു മേഖലാ ജീവനക്കാരും മാർച്ച് നടത്തി സി ഐ ടി യു ദേശീയ സെക്രട്ടറി കെ ചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു ശേക്ഷക്കങ്ങ നീർച്ചാലുകൾ വീണ്ടെടുക്കാനും പ്രളയക്കെടുതി കുറ യ്ക്കാനും കോട്ടയം ജില്ലയിൽ സുജലം പദ്ധതി നടപ്പാ ക്കും ഉറവിട മാലിന്യ നിർമ്മാർജ്ജനത്തിന് ക്സീൻ കോട്ടയം ഗ്രീൻ കോട്ടയം പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങ ളുടെ അടുത്ത വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്താനും ജില്ലാ ആസൂത്രണസമിതി യോഗം തീരുമാനിച്ചു